പരാക്രംപർവ് പരിപാടികൾ പുരോഗമിക്കുന്നു മഹാത്മാഗാന്ധി രാജ്യാന്തര ശുചിത്വകൺവൻഷൻ ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും സംസ്ഥാനത്ത് ബ്രൂവറികളും ഡിസ്റ്റിലറികളും

സ്വന്തം ശീലത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷത്തിന്റെ അഴിമതിയാരോപണമെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ സംസ്ഥാനത്തെ എല്ലാ സ്കൂൾ ബസുകളിലും മറ്റന്നാൾ മുതൽ ജി പി എസ് സംവിധാനം നിലവിൽ വരും ഐ എസ് എൽ ഫുട്ബോൾ മത്സരങ്ങൾക്ക് ഇന്ന് കിക്കോഫ് മൃഗീയമായി ഇന്ത്യൻ കൊലപ്പെടുത്തിയതിന് പാകിസ്ഥാന് സൈന്യം രണ്ട് ദിവസംമുമ്പ് തിരിച്ചടി നൽകിയെന്ന് സൂചന നല്കി കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ്സിംഗ് രണ്ട് ദിവസംമുമ്പ് വൻസംഭവം ഉണ്ടായിട്ടുണ്ടെന്നും അതെന്താണെന്ന് ഇപ്പോൾ വെളിപ്പെടുത്താനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു

ഭാവിയിൽ എന്ത് സംഭവിക്കാൻ പോകുന്നുവെന്ന് നമുക്ക് കാണാമെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാൻ രാജ്യത്ത് അശാന്തി സൃഷ്ടിക്കുകയാണ് മോശം പ്രവൃത്തികളിൽ നിന്നുപോലും അവർ വിട്ടുനിൽക്കുന്നില്ല എത്ര മോശമായാണ് ബി എസ് എഫ് ജവാന്മാരോട് അവർ പെരുമാറുന്നതെന്ന് ജനങ്ങൾ ചോദിക്കുന്നുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു

ഇന്ത്യൻ സായുധ സേനയുടെ വീര്യവും കരുത്തും തെളിയിക്കുന്ന ചരിത്രസംഭവങ്ങൾ പരാക്രംപർവിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് കൊച്ചിയിലും ഇതിന്റെ ഭാഗമായി നാവികസേന കമാൻഡ് പ്രദർശനം ഒരുക്കിയിട്ടുണ്ട്

പാകിസ്താനിലെ നിരവധി ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യൻ സേനയുടെ മിന്നലാക്ര മണത്തിൽ തകർന്നു ജോധ് പൂരിൽ സം ഘടിപ്പിച്ച പരാക്രം പർവ് സൈനിക പ്രദർശനം പ്രധാനമന്ത്രി ഇന്നലെ ഉദ്ഘാടനം ചെ യ്തിരുന്നു സർജിക്കൽ സ്ട്രൈക്കിന്റെ രണ്ടാം വാർഷികാചരണ പരിപാടികൾ കോഴിക്കോട് ജെ ഡിടി ഇസ്ലാം ഹയർസെക്കണ്ടറി സ് കൂളിൽ നടന്നു

സർജിക്കൽ സ്ട്രൈക്കിന്റെ വീഡിയോ പ്രദർശനവും നടത്തി

നാല് ദിവസത്തെ സമ്മേളനത്തിൽ ലോകരാജ്യങ്ങളിലെ നേതാക്കൾ പങ്കെടുക്കും

സ്വച്ച് ഭാരത് ദിവസമായ ഒക്ടോബർ രണ്ടിന് സമ്മേളനം സമാപിക്കും

അഴിമതിയിൽ വൃവസായ വകുപ്പിനും പങ്കുണ്ടെന്ന് അദ്ദേഹം കോഴിക്കോട്ട് വാർത്താസ്മ്മേളനത്തിൽ കുറ്റപ്പെടുത്തി ഇക്കാര്യത്തിൽ ഉന്നയിച്ച ആക്ഷേപങ്ങൾക്കൊന്നും മുഖ്യമന്ത്രിയും മന്ത്രി ടി പി രാമകൃഷണനും മറുപടി നല്കിയിട്ടില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു എൽ ഡി എഫിന്റെ മദ്യനയത്തിലും പ്രകടനപത്രികയിലും പറയാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്നത്

വൃവസായ വകുപ്പ് അറിയാതെ കിൻഫ്രയിൽ ഭൂമി അനുവദിക്കാൻ കഴിയിലെന്നും അദ്ദേഹം പറഞ്ഞു ബ്രൂവറികൾ തുടങ്ങാൻ ആരാണ് ഉത്തരവ് നൽകിയതെന്ന് എക്സൈസ് മന്ത്രി വ്യക്തമാക്കുകയും ഉത്തരവിന്റെ കോപ്പി പുറത്തുവിടുകയും വേണം മുഖ്യമന്ത്രിമാരായിരുന്ന നായനാരും അച്യുതാനന്ദനും ചെയ്യാത്താണ് പിണറായി വിജയൻ രഹസ്യമായി ചെയ്തതെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി എക്സൈസ് വകുപ്പിനെ കറവപ്പ ശുവാക്കുന്നവരാണ് സി പി ഐ എം എന്ന് അദ്ദേഹം പറഞ്ഞു ജനം പ്രളയദുരന്തത്തിൽ വലയുമ്പോൾ ഇത്രയും വലിയ അഴിമതി നടത്തിയതിൽ മുഖൃമന്ത്രി ഒന്നാം പ്രതിയാണെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി

സ്വന്തം ശീലം വെച്ചാണ് ബ്രൂവറി അനുവദിച്ചതിൽ പ്രതിപക്ഷത്തിന്റെ അഴിമതി ആരോപണ്മെന്നും ആരോപണം കൊണ്ട് മാത്രം അഴിമതിയാകില്ലെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു

ലഹരിവർജ്ജനത്തിന് അടുത്തമാസം സംസ്ഥാനത്ത് ഡി അഡിക്ഷൻ സെന്ററുകൾ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു ലലലലലലലലലലലല ശബരിമലയിൽ സ്ത്രീ പ്രവേശനം സംബന്ധിച്ച സുപ്രീംകോടതി വിധി അഭിപ്രായ ഐകൃത്തിലൂടെ നടപ്പാക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു

സ്ത്രീപ്രവേശന കാര്യത്തിൽ ഭിന്നാഭിപ്രായം പുലർത്തുന്ന വരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും മന്ത്രി വ്യക്തമാക്കി

വിവേചനം പാടില്ല എന്നതിൽ എല്ലാവരും ഐക്യപ്പെടണമെന്ന് മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു

പ്രധാനമന്ത്രിയുടെ പ്രഭാഷണം കഴിഞ്ഞാലുടൻ കേരള നിലയങ്ങൾ മലയാളപരിഭാഷ പ്രക്ഷേപണം ചെയ്യും രാത്രി എട്ടിന് ഇതിന്റെ പുനഃപ്രക്ഷേപണം കേൾക്കാം

ആദ്യഘട്ടമായി സ്കൂൾബസുകളിലും തുടർന്ന് സ്ഥകാര്യ കെ എസ് ആർ ടി സിബസുകളിലും ടാങ്കറുകളിലും ചരക്കുവാഹനങ്ങളിലും ജി പി എസ് നിർബന്ധമാക്കുമെന്ന് ഗതാഗത കമ്മീഷണർ കോട്ടയത്ത് അറിയിച്ചു നിശ്ചിത സമയത്തിനകം ജി പി എസ് ഘടിപ്പിക്കാത്ത വാഹനങ്ങൾ നിരത്തിലിറക്കാൻ അനുവദിക്കില്ലെന്നും ഇവയ്ക്ക് പരിശോധനാസർട്ടിഫിക്കറ്റ് നല്കില്ലെന്നും അദ്ദേഹം വൃക്തമാക്കി

ജീവിതശൈലിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ ഹൃദ്രോഗം ഇല്ലാതെ മുന്നോട്ടുപോകാൻ കഴിയും ലോകഹൃദയദിനത്തോടനുബന്ധിച്ച് സെമിനാറുകൾ ഉൾപ്പെടെ ഒട്ടേറെ പരിപാടികൾ നടന്നുവരുന്നു

ഹെർട്ട്കെയർ സൊസൈറ്റി പ്രസിഡണ്ട് ഡോ കെ കുഞ്ഞാലി നേതൃത്വം നല്കി

കൊൽക്കത്തയിൽ ഇന്ന് ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ് റ്റേഴ് സ് എ ടി കെ കൊൽക്കത്തിയെ നേരിടും

കലിക്കറ്റ് സർവകലാശാല മുക്തിമിഷനുമായി ചേർന്ന് നടപ്പാക്കുന്ന ലഹരിവിമുക്ത യൌവനം പദ്ധതിയുടെ ഉദ്ഘാടനം എക്സൈസ് കമ്മീഷണർ ഋഷിരാജ്സിംഗ് സർവകലാശാലയിൽ നിർവഹിച്ചു ലഹരിക്കെതിരെ പോരാടുന്ന ഏറ്റവും വലിയ എൻ ജിഒ ആണ് എൻ എസ് എസ് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പഞ്ചാബ് കഴിഞ്ഞാൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്നതെന്നും ഋഷിരാജ് സിംഗ് പറഞ്ഞു

വിമുക്തി മിഷന്റെയും ആരോഗ്യവകുപ്പിന്റെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുകയെന്നും അദ്ദേഹം അറിയിച്ചു പ്രളയമുഖത്ത് സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവർക്കുളള സമ്മാനങ്ങൾ ഋഷിരാജ്സിംഗ് വിതരണം ചെയ്തു

സ്കൂളിൽനിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി

രോഗികളുടെ നീണ്ട കാത്തിരിപ്പു ഒഴിവാക്കാൻ ഓൺലൈൻ ഒ

രാവിലെ പാലക്കാട് സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നാടകം അവത്രിപ്പിച്ചു മണ്ണാർക്കാട് ഒറ്റപ്പാലം എന്നിവിടങ്ങളിലെ അവതരണത്തിന് ശേഷം പരൃടനം പട്ടാമ്പിയിൽ സമാപിക്കും